ആവശ്യമെങ്കിൽ കോൺഗ്രസ് മന്ത്രിമാർ രാജിക്ക് തയ്യാ റെന്ന് ഉപമുഖ്യമന്ത്രി ജി പരമേശ്വര

പാലക്കാട് ജില്ലാ ജയിൽ ഉദ്ഘാടനം നാളെ

ഗവൺമെന്റിന് പിന്തുണ പിൻവലിക്കുന്നതായി കാണിച്ച് ഗവർണർ വാജുഭായ് ആർ വാലെയ്ക്ക് അദ്ദേഹം കത്തു നൽകി

രൂപീകരിച്ചാൽ പിന്തുണ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു അതിനിടെ മന്ത്രിസഭ പുനസംഘടനയ്ക്ക് വഴിയൊരുക്കാ നായി കോൺഗ്രസ് മന്ത്രിമാർ രാജി നൽകിയതായി റിപ്പോർട്ടു ണ്ട് ബംഗളൂരൂവിൽ ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയുടെ വീട്ടിൽ യോഗത്തിലെടുത്ത തീരുമാന പ്രകാരമാണ് രാജിയെന്നാണ് റിപ്പോർട്ട്

ആവശ്യമെങ്കിൽ ഉപമുഖ്യമന്ത്രിയടക്കം കോൺഗ്രസിലെ മന്ത്രി മാർ രാജിയ്ക്ക് തയ്യാറാണെന്ന് പരമേശ്വര വ്യക്തമാക്കി വിമത രുടെ ഏത് ആവശ്യവും പരിഗണിക്കാൻ തയ്യാറാണെന്നും പരമേ ശ്വര ബംഗളുരുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കർണാടക സംഭവത്തിൽ ലോക്സഭയിൽ കോൺഗ്രസ് അടി യന്തരപ്രമേയത്തിന് നോട്ടീസ് നല്കി കർണാടകത്തിൽ സഖ്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നാ രോപിച്ച് ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ചീഫ് വിപ് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് നോട്ടീസ് നല്കിയത് പ്രശ്നത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ ലോക്സഭയിൽ ബഹളം വെച്ചു

പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ലക്നൌവിൽ നിന്നും ഡൽഹിക്ക് പോവുകയായിരുന്ന സ്ത്രീപ്പർ ബസ് പൂലർച്ചെ വെള്ളച്ചാലിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം

മരിച്ചവരുടെ ആശ്രിതർക്ക് ഉത്തർപ്രദേശ് ഗവ

അപകടത്തിൽ ഉന്നത തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദേശം നൽകി ഉത്തർപ്രദേശിലെ വാഹനാപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അനുശോചനം അറിയിച്ചു ആഗ്രയിലെ അപകടത്തിൽ മരി ച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നതായും പരി ക്കേറ്റവർക്ക് എത്രയും വേഗം ആരോഗ്യം തിരിച്ചു കിട്ടട്ടെയെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു അപകടത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന ഗവൺമെന്റും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാ സഹായവും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സുപ്രീംകോടതി രജിസ്ട്രിയിലെ അഴിമതിയും ക്രമക്കേടും തട യാൻ മുതിർന്ന സിബിഐ ഉദ്യോഗസ്ഥരെയും ഡൽഹി പൊലീ സിനെയും ്നിയോഗിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിർദേശം നൽകി കേസുകൾ മുൻഗണനാ ക്രമം തെറ്റിച്ച് പരിഗ ണിക്കാനും ബെഞ്ചുകൾ തീരുമാനിക്കാനും രജിസ്ട്രിയിൽ ശ്രമം നടക്കുന്നതായി ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് നടപ ടി സിബിഐ പൊലീസ് ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേൻ അടിസ്ഥാ നത്തിലായിരിക്കും നിയമിക്കുന്നത്

പകരം എഥനോൾ ഉൽപാദനത്തിൽ പഞ്ചസാര മില്ലുകൾ ശ്രദ്ധ കേന്ദ്രീ കരിക്കണമെന്ന് അദ്ദേഹം നിർദേശിച്ചു

ജലദൌർലഭ്യമല്ല ജലോപയോഗം സംബന്ധിച്ച അജ്ഞത യാണ് രാജ്യം നേരിടുന്നതെന്നും കേന്ദ്രമന്ത്രി പ്പറഞ്ഞു ബജറ്റിൽ സ്വർണത്തിന്റെ കംസ്റ്റസ് ഡ്യൂട്ടി വർധിപ്പിച്ചത് അത്യാ വശ്യമില്ലാത്ത സാധനങ്ങളുടെ ഇറക്കുമതിച്ചതടയുക എന്ന ഗവ

സ്വർണ കള്ളക്കടത്ത് പ്രശ്നം എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു നമ്മുടെ വിദേശ നാണ്യം ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഉപയോ ഗിക്കില്ലെന്നും സ്വർണം ഈ വിഭാഗത്തിൽപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിന്റെ സാമ്പത്തിക തീരുമാനങ്ങൾ മൊത്തം സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയാ ണെന്നും ആരെങ്കിലും ദുരുപയോഗം ചെയ്യുമോ എന്ന് നോക്കി യല്ലെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും മൺസൂൺ എത്തിയെ ങ്കിലും മൂന്നിൽ രണ്ട് ഭാഗങ്ങളിലും മഴക്കുറവ് രേഖപ്പെടുത്തിയ തായി കാലാവസ്ഥ വകുപ്പ് ഡൽഹിയിൽ അറിയിച്ചു ഇന്ത്യൻ കാലാവസ്ഥ പഠന കേന്ദ്രത്തിന്റെ നാലിൽ മൂന്ന് ഉപമേഖലകളിലും മഴക്കുറവ് രേഖപ്പെടുത്തി

രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ മേഖലയിലുമാണ് മഴക്കു റവ് കൂടുതൽ രേഖപ്പെടുത്തിയതെന്ന് കാലാവസ്ഥിവകുപ്പ് അറി യിച്ചു പാലക്കാട് ജില്ലാ ജയിൽ മലമ്പുഴ മന്തക്കാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉൽഘാടനം ചെയ്യും നിലവിൽ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ടക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ജയിൽ ഇവിടേക്കുമാറും

മുസ്ത്രീം സ്ത്രീകളെ പള്ളിയിൽ കയറാൻ അനുവദിക്കണമെ ന്നാവശ്യപ്പെട്ട് ഹിന്ദുമഹാസഭാ കേരള ഘടകം നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി

നേരത്തെ ഹൈക്കോ ടതി ഹർജി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് ഹർജിക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് ഇന്ത്യ യിൽ വിക സിപ്പിച്ച ബ്രഹ്മോ സിന്റെ പുതു ക്കിയ മിസൈൽ പ്രവർത്തനസജ്ജമായതായി ബ്രഹ്മോസ് എയ്റോ സ്പേസ് സി ഇ ഒ സുധീർകുമാർ മിശ്ര ന്യൂഡൽഹിയിൽ അറി യിച്ചു

കാർഷിക വായ്പ മൊറിട്ടോറിയം കാലാ വധി നീട്ടണമെന്ന് കൂടിക്കാഴ്ചയിൽ മന്ത്രി ആവശ്യപ്പെടും

അണക്കെട്ടുകളിലെ ജലനിരപ്പ് പരമാവധി താഴ്ന്നതിനാൽ വൈദ്യുതോത്പാദനം പകുതിയോളമായി കുറച്ചു അഞ്ചര ദശ ലക്ഷം യൂണിറ്റാണ് ഇപ്പോൾ പ്രതിദിന ഉത്പാദനം യു എ ഇർവിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായെദ് അൽ നഹിയാൻ മൂന്നുദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തി ഇന്ന് അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വ്യാപാരം ഊർജ്ജം ഉൾപ്പെടെ മേഖലക ളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം കാണും ബിസി നസ്സ് റൌണ്ട് ടേബിൾ ചർച്ചയിലും യു എ ഇ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും

വൈകീട്ട് മൂന്നിന് മാഞ്ചസ്റ്ററിലാണ് മത്സരം വ്യാഴാഴ്ച ബർമിങ്ഹാമിൽ രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും ഒളിമ്പിക്സ് അടക്കം രാജ്യാന്തര മത്സരങ്ങളിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം ഉറപ്പിക്കാൻ ദീർഘകാല തയ്യാറെടുപ്പുകൾ അനി വാര്യമാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെട്ടു മികച്ച അത്ലറ്റുകളെ സൃഷ്ടിക്കുക എന്ന് ഉദ്ദേശ്യത്തോടെ രാജ്യത്ത് പുതിയ കായിക സംസ്കാര്യം വളർത്തിയെടു ക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം മുംബൈ യിൽ പറഞ്ഞു കഴിവുറ്റ താരങ്ങളുണ്ടായിട്ടുപോലും അതിനനു സൃതമായ മെഡൽ നേട്ടമുണ്ടാവാത്തിൽ കിരൺ റിജിജു അസ ന്തുഷ്ടി പ്രകടിപ്പിച്ചു സംസ്ഥാനത്തെ മെഡിക്കൽ എഞ്ചിനിയറിംഗ് പ്രവേശനത്തിന് അലോട്ട്മെന്റ് വൈകിട്ട് പ്രസിദ്ധീകരിക്കും

ഇന്നലെ പ്രസിദ്ധീകരിച്ച പ്രവേശന ഷെഡ്യൂളും വെബ്സൈറ്റിൽ ലഭ്യമാണ് മെഡിക്കൽ കൌൺസിലിങ് കമ്മിറ്റി നടത്തുന്ന നീറ്റ് യു ജി അലോട്ട്മെന്റിന്റെ രണ്ടാം ഘട്ടം നാളെ തുടങ്ങും

കോടതി ഉത്തരവിന് വിധേയമായി ഐ പി കാട്ട സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് നടത്തും

പുരുഷൻ കടലുണ്ടി എം എൽ എ കേരള സാഹിത്യഅക്കാദമി സെക്രട്ടറി കെ പി മോഹനൻ ശ്രീദേവി കക്കാട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും

സുഹൃത്തുക്കൾക്കായി കൊണ്ട് വരികയായിരുന്ന കഞ്ചാവുമായി വയനാട് മുത്തങ്ങയിൽ യുവാവ് എക്സൈസിന്റെ പിടിയിലായി ബീഹാർ റോത്താസ് ബിയർബാന്ത് സ്വദേശിയും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറും ബാംഗ്ലൂരിൽ ഓൺലൈൻ ഗെയിംസ് നിർമ്മാണ കമ്പനിയിലെ ഉദ്യോഗ്സ്ഥനുമായ പ്രഭാത് സിങ്ങിനെയാണ് പിടികൂടിയത് യുവാവിൽ നിന്ന് അരക്കിലോ യിലേറെ കഞ്ചാവ് കണ്ടെടുത്തു

പെരുമ്പ കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്ക് സമീപത്തെ ഹോട്ട ലാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് ഒരു സംഘം അടിച്ചുതകർത്തത് കഴിഞ്ഞാവർഷമുണ്ടായ പ്രളയക്കെടുതിയിൽ കിടപ്പാടവും കൃഷിയും കച്ചവട സ്ഥാപനങ്ങളും മറ്റും നഷ്ടപ്പെട്ടവർക്ക് എസ് കെ എസ് എസ് എഫ് ദുരിതാശ്ചാസ ഫണ്ട് വിതരണം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദലി ശിഹാബ് തങ്ങൾ കോഴിക്കോട്ട് ഫണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഓണം സീസണ് മുന്നോടിയായി മൂന്നാറിലെ ഗതാഗത പരി ഷ്കാരങ്ങൾ നടപ്പാക്കാൻ മൂന്നാർ വികസന സമിതിയോഗം തീരു മാനിച്ചു ഇതുസംബന്ധിച്ച നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട വകുപ്പു കൾക്ക് നൽകി

വിനോദ സഞ്ചാര കേന്ദ്രമായ മൂന്നാറിലെ റോഡുക ളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്സ് മണ്ഡലം കമ്മറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി ധനുഷ്ക്കോടി ദേശീയപാത ഉപരോധിച്ചു

സി വൈസ് പ്രസിഡൻറ് എ കെ മണി ഉദ്ഘാടനം ചെയ്തു